ശാരദാ ചിട്ടിതട്ടിപ്പ് കേസിൽ കൊൽക്കത്ത മുൻ പൊലീസ് കമ്മീഷണർ രാജീവ് കുമാറിനെ അറസ്റ്റ് ചെയ്യുന്നതിനുള്ള വിലക്ക് സുപ്രീംകോടതി നീക്കി

യോഗൃത അടിസ്ഥാനമാക്കിയുള്ള പുതിയ കുടിയേറ്റ സമ്പ്രദായത്തിന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്പ് സാധുത നൽകി

ആദ്യശ്രമത്തിൽ തന്നെ എവറസ്റ്റ് കൊടുമുടി കീഴടക്കി ദേശീയ സുരക്ഷാ ഗാർഡ് കമാൻഡോകൾ

അന്തരിച്ച കോൺഗ്രസ് നേതാവും മുൻമന്ത്രിയുമായ കടവൂർ ശിവദാസന്റെ സംസ്കാരം ഇന്ന് വൈകിട്ട്

എന്നാൽ തുടർ നിയമ്പ് നടപടികൾക്കായി കോടതിയെ സമീപിക്കുന്നതിന് അദ്ദേഹത്ത്തിന്റ് ഏഴു ദിവസത്തെ താത്ക്കാലിക ഇളവും കോടതി അനുപ്പ്ദിച്ചിട്ടു്ണ്ട്

കേസിൽ നിയമാനുസൃതമായ് നടപടികൾ സ്വീകരിക്കാൻ സിബിഐ യോട് ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ് ആവശ്യപ്പെട്ടു രാജീവ് കുമാറിനെ കസ്റ്റഡിയിൽ എടുത്ത് ചോദ്യം ചെയ്യേണ്ടതുണ്ടെന്ന് സിബിഐ പരമോന്നത കോടതിയെ അറിയിച്ചു ശാരദ ചിട്ടി തട്ടിപ്പ് കേസ് അന്വേഷിച്ച പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ തലവനായിരുന്നു മുൻ കൊൽക്കത്ത പോലീസ് കമ്മീഷണറായിരുന്ന രാജീവ് കുമാർ

അക്രമ സംഭവങ്ങളുടെ പശ്ചാത്തലത്തിലാണ് നിർദ്ദിഷ്ട സമയത്തിന് ഒരു ദിവസം മുമ്പ് പശ്ചിമ ബംഗാളിൽ പ്രചാരണം അവസാനിപ്പിക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉത്തരവിട്ടത്

വിവിധ കക്ഷികളിലെ പ്രമുഖ ന്ളേത്ാക്കൾ അവസാന ദിനമായ ഇന്ന് പ്രചാരണത്തിനിറങ്ങും മുതിർന്നു ബി ജെ പി നേതാവും പ്രധാനമന്ത്രിയുമായ നരേന്ദ്രിമ്മോദി മധ്യപ്രദേശിലെ ഖാർനോത്തിൽ പ്രചാരണ യോഗത്തെ അഭിസംബോധന ചെയ്യും കേന്ദ്രമന്ത്രി നരേന്ദ്രസിംഗ് തോമർ ബി ജെ പി ഉപാധ്യക്ഷൻ ശിവരാജ്സിംഗ് ചൌഹാൻ തുടങ്ങിയവർ മാൾവ നിമാദ് മേഖലകളിൽ ഇന്ന് പ്രചാരണത്തിനിറങ്ങും കോൺഗ്രസ്സ് നേതാവും മുഖ്യമന്ത്രിയുമായ കമൽനാഥ് മുതിർന്ന നേതാവ് ദിഗ് വിജയ് സിംഗ് അരുൺ യാദവ് എന്നിവരും മധ്യപ്രദേശിൽ പ്രചാരണം നടത്തും ഉത്തർപ്രദേശിൽ മുതിർന്ന ബി ജെ പി നേതാക്കളായ രാജ്നാഥ് സിംഗ് രാജൃവർദ്ധൻ റാത്തോഡ് ജെ പി നദ്ദ മനോജ് സിൻഹ തുടങ്ങിയവർ വിവിധ മണ്ഡലങ്ങളിൽ പര്യടനം നടത്തും കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽഗാന്ധി ദേവ്റയിൽ റാലിയെ അഭിസംബോധന ചെയ്യും പാർട്ടി ജനറൽ സെക്രട്ടറി പ്രിയങ്കാഗാന്ധി വദ്ര മിർസാപൂരിൽ പ്രചാരണം നടത്തും മിർസാപൂർ ചന്ദൌലി എന്നിവിടങ്ങളിൽ സംഘടിപ്പിക്കുന്ന റാലികളിൽ ബിഎസ്പി നേതാവ് മായാവതി സമാജ്വാദി പാർട്ടി അധ്യക്ഷൻ അഖിലേഷ് യാദവ് ആർ എൽ ഡി നേതാവ് അജിത് സിംഗ് തുടങ്ങിയവർ പങ്കെടുക്കും

യഥാർത്ഥ വോട്ടെടുപ്പിന് മുൻപ് നടത്തിയ മോക്ക്പോളിൽ രേഖപ്പെടുത്തിയ വോട്ടുകൾ നീക്കം ചെയ്യാൻ ബൂത്തിന്റെ ചുമതല ഉണ്ടായിരുന്ന ഉദ്യോഗസ്ഥൻ മറന്നതിനെ തുടർന്നാണ് ഈ നടപടി

ഡയമണ്ട് ഹാർബറിലെ സബ് ഡിവിഷണൽ പൊലീസ് ഓഫീസർ മിഥുൻ കുമാർ ദെ ആംമേസ്റ്റ് സ്ട്രീറ്റ് പൊലീസ് സ്റ്റേഷന്റെ ചുമതലയുള്ള കൌശിക് ദാസ് എന്നിവരെയാണ് ഒഴിവാക്കിയത് രണ്ട് ഉദ്യോഗസ്ഥർക്കും തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഉത്തരവാദിത്വങ്ങൾ ഇനി നൽകില്ലെന്ന് ഔദ്യോഗിക വൃത്തങ്ങൾ അറിയിച്ചു കൊൽക്കത്തയിൽ കഴിഞ്ഞദിവസം തെരഞ്ഞെടുപ്പ് പ്രചാരണവുമായി ബന്ധപ്പെട്ടുണ്ടായ അക്രമ സംഭവങ്ങളെ തുടർന്നാണ് നടപടി

വിഷയത്തിൽ റിപ്പോർട്ട് സമർപ്പിക്കാൻ കമ്മീഷൻ മധ്യപ്രദേശ് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർക്ക് നിർദ്ദേശം നൽകി ഭോപ്പാൽ ലോക്സഭാ മണ്ഡലത്തിലെ ബി ജെ പി സ്ഥാനാർത്ഥിയായ പ്രഗ്യാസിംഗ് നടത്തിയ പ്രസ്താവനക്കെതിരെ നിരവധി പ്രതിപക്ഷ പാർട്ടികൾ രംഗത്തെത്തിയിരുന്നു

അമേരിക്കൻ പ്രവേശനത്തിന് ശ്രമിക്കുന്ന ഇന്ത്യൻ പ്രൊഫഷണലുകൾ ഉൾപ്പെടെയുള്ള ആയിരക്കണക്കിന് വിദേശികൾക്ക് സഹായകരമാകുന്നതാണ് നടപടി

മൈക്കേൽ ഹെർഷ്മാൻ എന്നയാൾ ഈ വിഷയത്തിൽ അടുത്തിടെ നടത്തിയ വെളിപ്പെടുത്തലുകളെ തുടർന്ന് കേസിൽ തുടരന്വേഷണം നടത്താൻ സി ബി ഐ വിചാരണ കോടതിയുടെ അനുമതി തേടിയിരുന്നു

തുടരന്വേഷണം നടത്തുന്നതിന് കോടതിയുടെ അനുമതി നിർബന്ധമല്ലെന്ന് വിഷയത്തിൽ കോടതി വൃക്തമാക്കിയതായി ഇന്നലെ സി ബി ഐ പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറയുന്നു

ആദ്യശ്രമത്തിൽ തന്നെയാണ് എൻ

ഗാർഡുകൾ ലോകത്തിലെ ഏറ്റവും ഉയർന്ന് കൊടുമുടി കീഴടക്കിയത്

വെടിവെയ്പിൽ രണ്ടു തീവ്രവാദികളും ഒരു സഹായിയും ഇന്നലെ കൊല്ലപ്പെട്ടിരുന്നു

മൂന്നുതവണ മന്ത്രിയായിരുന്നു അദ്ദേഹം തൊഴിൽ വൈദ്യുതി എക്സൈസ് വനം ആരോഗ്യം എന്നീ് വകുപ്പുകൾ കൈകാര്യം ചെയ്തിട്ടുണ്ട് ഡിസിസിയിൽ പൊതുദർശനശേഷം ഭൌതികദേഹം ആനന്ദവല്പീശ്വരത്തെ സ്വവസതിയിലേക്ക് കൊണ്ടുപോകും

പാർലമെന്റ് മന്ദിരത്തിന്റെ മാതൃക കാണികളെ ആകർഷിക്കുമെന്ന് ഉറപ്പ് ആയൂർവേദ സസ്യങ്ങൾക്കും പുഷ്പങ്ങൾക്കുമായി പ്രത്യേക വിഭാഗം തന്നെ ഒരുക്കിയിട്ടുണ്ട്

കടുത്ത ചൂടിൽ വലയുന്ന നാടിന് പുഷ്പമേള വലിയൊരു ആശ്വാസമാകുമെന്ന് ഉറപ്പ് ന്യൂസ് ഡെസ്ക് ആകാശവാണി

അതിനിടെ ഈ ജില്ലകളിലെ ബാങ്ക് സേവനങ്ങളുടെ സ്ഥിതിഗതികൾ കേന്ദ്ര ധനകാര്യ അഡീഷണൽ സെക്രട്ടറി ദേബാശിശ് പാണ്ഡെയുടെ നേതൃത്വത്തിൽ ഇന്നലെ ചേർന്ന യോഗം വിലയിരുത്തി

സൌദി അറേബൃയിലെ ഇന്ത്യൂർ സ്ഥാനപതി ഔസഫ് സയീദ് ജീവനക്കാർക്കായി ഒരുക്കിയ ഇഷ്താ്ർ വിരുന്നിനിടെ ഇന്നലെ അറിയിച്ചതാണ് ഇക്കാര്യം ഇതിനുള്ള തുടർ നടപടികൾ ഉടൻ ആരംഭിക്കുമെന്ന് അദ്ദേഹം പുറിഞ്ഞു